ലധികം കോവിഡ് രോഗികൾ കൂടുതൽ ചികിത്സാ സൌകരൃങ്ങൾ ഒരുക്കി സംസ്ഫീന്റ സർക്കാർ

നെത്താനാവുന്ന ്സ്ഥാപനങ്ങളാണ് സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെയർഹോം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കം

തുടക്കം

രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ

ജീവന്റെ വിലയുള്ള ജാഗ്രത എന്ന മുദാവാകൃം ഉയർത്തിയാണ് മൂന്നാംഘട്ട് കൃാമ്പയിൻ ആരിൽ നിന്നും രോഗം പകരാമെന്ന ജ്യ്ഗുതാ നിർദ്ദേശമാണ് ജനങ്ങൾക്ക് മൂന്നാം ഘട്ട ക്യാമ്പ്പെയ്നിൽ നൽകാനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുൻകരുത്ലുകൾക്ക് ജീവന്റെ വിലയാണെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഉറവിടമറിയാത്ത രോഗികൾ കൂടുന്നതും ആശങ്ക ഉയർത്തുന്നു

അഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കും ഒരു പൊലീസുകാരനും രോഗം സ്ഥിരീകരിച്ചു

കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങൾ കോവിഡ് ചികിത്സയ്ക്കായി തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു പൂന്തുറയിൽ സ്ഥിരീകരിച്ച സൂപ്പർ സ്പ്രെഡ് മറ്റ് തീരപ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു സ്ഥകാര്യ മേഖലയിലെ ആശുപത്രികളുടെ സഹകരണവും സംസ്ഥാന സർക്കാർ തേടുകയാണ് പഞ്ചായത്ത് തലത്തിലും വാർഡുകൾ കേന്ദ്രീകരിച്ചും കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കുന്നുണ്ട്

നഗരത്തിലെ പാർപ്പിട കേന്ദ്രത്തിൽ ഒരുമിച്ചു താമസിക്കു വന്നവരാണ് ഇവർ

ജയചന്ദ്രൻ

അഹമ്മദാബാദിൽ നിന്ന് മെയ് മാസം നാട്ടിലെത്തിയ ഇദ്ദേഹം നിരീക്ഷണ കാലാവധിക്ക് ശേഷവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടിൽ കഴിയുകയായിരുന്നു പെൻഷൻ കഴിഞ്ഞ രണ്ടുമാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം അവസാനം വിതരണം ചെയ്യും

ലോക്ഡൌൺ സാഹച രൃത്തിൽ ജനങ്ങളുടെ കയ്യിൽ പ്രണം എത്തിക്കാനാണ് പെൻഷൻ വിതരണം നേരത്തെയാക്കിയ തെന്ന് ധനമന്ത്രി ടി

തോമസ് പ്രഐസക് അറിയിച്ചു

സപ്ലൈകോ ലഭ്യമാക്കുന്ന ആപ്പുകൾ മുഖേന ഭക്ഷ്യ വസ്തുക്കൾ വീടുകളിൽ എത്തിക്കുന്ന സംവിധാനമാ ണിത് സപ്പൈകോ ആസ്ഥാനത്തും എറണാകുളത്തുമാണ് ഈ സംവിധാനം നടപ്പിലാക്കിയിട്ടുള്ളത്

പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമാണത്തി നായി സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹി ക്കുകയായിരുന്നു അദ്ദേഹം ഒന്നാം ഘട്ടത്തിൽ പദ്ധതി വഴി നിർമിച്ച വീടുകൾ മികച്ചതാണെന്ന് മുഖൃമന്ത്രി പറഞ്ഞു ബാങ്കിംഗ് സേവനങ്ങൾ ജനങ്ങളുടെ ആവശൃത്തി നൊത്ത് ക്രമീകരിക്കാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെ ന്നും അദ്ദേഹം വൃക്തമാക്കി

പഞ്ചായത്ത് ഗ്രാമവികസനം നഗരകാര്യം എഞ്ചിനീ യറിംഗ് നഗര ഗ്രാമാസൂത്രണം എന്നീ വകുപ്പുകൾ ഏകീകരി ച്ചാണ് പൊതുസർവ്വീസ് രൂപീകരിക്കുന്നത് ലോക്കൽ ഗവൺമെന്റ് കമ്മീഷൻ സമർപ്പിച്ച കരട് ചട്ടങ്ങളും പ്രിൻസി പ്പൽ സെക്രട്ടറി അധൃക്ഷനായ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടും പരിഗണിച്ചാണ് നടപടി

ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച ഒൻപത് പേരുടെ ഉറവിടം കണ്ടെത്താനായില്ല

കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ ക്ഷേത്രങ്ങളിൽ കർക്കടക മാസ ചടങ്ങുകൾക്ക് നിയന്ത്രണങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പരമാവധി രണ്ട് പേരെ മാത്രമേ അനുവദിക്കൂ എന്ന് ബോർഡ് അറിയിച്ചിട്ടുണ്ട്

സ്വർണ്ണവിലയിൽ മാറ്റമില്ല